പി ജയരാജൻ

ള ൽ ൾ ൽ ൾ ൾ ൾ ൾ ൾ ൽ ഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റിന് സമീപം നിർമിച്ച ദേശീയ യുദ്ധ സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പി ക്കും

രാജ്യരക്ഷാ മന്ത്രിയും സൈനിക മേധാവി കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും സ്വാതന്ത്യം നേടിയ ശേഷം ഉണ്ടായ വിവിധ സൈനിക നടപടികളിൽ രാജ്യത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്തവരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് സ്മാരകം നിർമിച്ചത് വീരമൃത്യുവരിച്ച സൈനികരുടെ പേര് സമു ച്ചയത്തിലെ സ്മൃതി ഭിത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്

ഡൽഹിയിൽ വിമുക്തഭടൻമാരുടെ റാലിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുക പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ കർഷകർക്ക് ഒരു വർഷം നൽകുന്ന ആറായിരം രൂപ്പ് വരും വർഷങ്ങളിൽ വർധിപ്പി ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായി കേന്ദ്രസഹ മന്ത്രി അൽഫോൻസ് കണ്ണന്താനം വെളിപ്പെടുത്തി

മുൻ ഗവൺമെന്റുകൾ കൈക്കൊണ്ട തെറ്റായ നടപടികളാണ് റബ്ബ റിനെ കാർഷിക വിളകളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതെന്ന് കണ്ണന്താനം പറഞ്ഞു ഗവൺമെന്റ് ഒരിക്കൽകൂടി അധികാരത്തിൽ വന്നാൽ കർഷകർക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കുന്ന പദ്ധതികളുടെ അടുത്ത ഘട്ടം തുടങ്ങുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർഥ്യമാക്കാനും വിദ്യാഭ്യാസം വിദ്യാർഥികൾക്ക് പ്രചോദനമാകണമെന്ന് കേന്ദ്രസഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം പേരൂർക്കടയിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ എസ്

പിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാവരും ഒന്നാണെന്ന സന്ദേശം പകർന്നു നൽകാൻ വിദ്യാഭ്യാസത്തിന് കഴി യണം വിദ്യാർഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കഴിയണമെന്നും കണ്ണന്താനം നിർദേശിച്ചു സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാനത്തെ കോടതികളുടെ അടിസ്ഥാന്റ് സൌകര്യങ്ഹൾ മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് പ്രത്യേക പ്രിഗണ്ന നൽകുന്നു ണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവല്ലയിൽ കോടതി സമുച്ചയത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം ജുഡീ ഷ്യൽ ഓഫീസർമാർക്ക് താമസസ്ൌകര്യം ലഭ്യമാക്കുന്നതിന് നടപ ടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ സ്ഥകാര്യ മേഖലകളിൽ ഖാദി എന്ന പേരിൽ വിൽ ക്കുന്ന തുണിത്തരങ്ങൾ യഥാർത്ഥ ഖാദിയല്ലെന്നും ഇത്തരം വ്യാജ ഖാദി വിൽപ്പന തടയാൻ നടപടി എടുക്കുമെന്നും മന്ത്രി ഇ പി ജയ രാജൻ കണ്ണൂരിൽ അറിയിച്ചു

ഖാദി തൊഴിലാളികൾക്ക് തൊഴിലും നൃായമാ യ കൂലിയും ലഭ്യമാക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കുമെന്നും ജയരാജൻ അറിയിച്ചു കുടിവെള്ള കണക്ഷൻ എടുക്കാൻ വേണ്ടിൾ വരുന്ന തുക മാസ ഗഡുക്കളായി അടയ്ക്കാൻ പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി കെ

പാലക്കാട് ജില്ലയിൽ വിവിധ ജലസേചന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജലസേചന വ കുപ്പ് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട തൊഴിൽ സംരംഭങ്ങൾ ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഗവർണമെന്റ് പരിശോധിച്ചു തുടർനട പടികൾ എടുക്കുമെന്നും മന്ത്രി വെളിപ്പെടുത്തി പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണം ഇതുവരെ കേസ് അന്വേ ഷിച്ചിരുന്ന സംഘത്തിൽ നിന്ന് ക്രൈബ്രാഞ്ച് ഇന്ന് ഔദ്യോഗിക മായി ഏറ്റെടുക്കും ഇന്നലെത്തന്നെ ക്രൈബ്രാഞ്ച് കേസിൽ പ്രാഥ മിക അന്വേഷണം ആരംഭിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് എസ് പി മുഹ മ്മദ് റഫീഖ് അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി കസ്റ്റഡി യിൽ കഴിയുന്ന മുഖ്യപ്രതി പീതാംബരൻ രണ്ടാം പ്രതി സജി എന്നി വരെ ഇന്ന് കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും മറ്റു പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകും

ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോ ടതിയെ സമീപിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു

ഡി എഫ് വടക്കൻ മേ ഖലാ ജാഥയ്ക്ക് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയലെ സ്വീകര ണ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരു ന്നു അദ്ദേഹം

അതേ സമയം കേസ് സിബിഐ അന്വേഷി ക്കണമെന്ന മരിച്ചവരുടെ വീട്ടുകാരു ടെ ആവശ്യത്തെ എതിർക്കുന്നില്ലെന്നും കാനം പറഞ്ഞു

സി സി പ്രസി ഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു

സി സി ജനമ ഹായാത്രയ്ക്ക് കോന്നിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാ രിക്കുകയായിരുന്നു മുല്ലപ്പള്ളി നവോത്ഥാന കേരള സൃഷ്ടിക്ക് സംഭാവന നൽകിയ മഹാൻമാ രെ പുതുതലമുറ അറിഞ്ഞിരിക്കണമെന്ന് മന്ത്രി എ

കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളിൽ കെ എസ്

സിയുടെ വൈദ്യുതി ബസുകൾ സർവീസ് ആരംഭിക്കും തെരഞ്ഞെടുത്ത റൂട്ടു കളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വൈദ്യുതി ബസുകൾ ഓടിക്കു ന്നത് പൊതുഗതാഗതത്തിന് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമെന്ന് മന്ത്രി എ

അന്തരീക്ഷ മലിനീ കരണം പരമാവധി കുറയ്ക്കുന്ന വാഹനങ്ങളായിരിക്കണം ഇനി കേരളത്തിൽ ഉപയോഗിക്കുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു വൈദ്യുതി ബസ് നയം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറശ്ശിനി ക്കടവിൽ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം മലബാറിൽ ജലപാതയ്ക്ക് വേണ്ടി തീവ്രശ്രമം നടത്തിവരിക യാണെന്ന് എ കെ ശശീന്ദ്രൻ അറിയിച്ചു

ബുധ നാഴ്ചയാണ് അടുത്ത മത്സരം

കേരളത്തിന്റെ രണ്ടാം വിജയ മാണിത് ബുധനാഴ്ച ജമ്മു കശ്മീരിനെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം

് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ അടച്ചുപൂട്ടൽ ഭീഷണി യിലാണെന്ന് മന്ത്രി എം

് സഹക രണ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ നിർണായക മാണെന്ന് രാജകുമാരി സഹകരണ ബാങ്കിന്റെ രണ്ടാമത്തെ ശാഖ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബാങ്ക് ശാഖയ്ക്ക് പുതു തായി നിർമിക്കുന്ന ആസ്ഥാന മന്ദിരത്തിനും മന്ത്രി തറക്കല്ലിട്ടു ് കണ്ണൂർ അഴീക്കൽ തുറമുഖം വഴി ചരക്കു നീക്കം പുനരാരംഭിച്ചു

ചരക്കു നീക്കം മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു

രണ്ടായിരം കോടി രൂപ് മുതൽമുടക്കിൽ ആധുനിക തുറമുഖ നിർമ്മാണം രണ്ടു ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു കാർഷിക രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാവരും ഒറ്റ ക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി ഇ

നീലേശ്വം കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന കൃഷി വകൂപ്പ് അനുവദിച്ച് കാർഷിക സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി ആശുപത്രികളെ രോഗീ സൌഹൃദമാക്കി ആരോഗൃമേഖലയിൽ സമഗ്രമായ മാറ്റമാണ് ഗവർണമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ

പഴമ്പാലക്കോട് പാരാമെഡിക്കൽ കേന്ദ്രത്തിന്റെ കെട്ടിടവും ഹോസ്റ്റലും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ് ് മത്സൃത്തൊഴിലാളി സുരക്ഷ ലക്ഷ്യമിട്ട് കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരികയാണെന്ന് മന്ത്രി ജെ

വിനോദസഞ്ചാരികൾക്ക് പരിസ്ഥിതി ചലച്ചിത്രങ്ങൾ ആസ്വദിക്കു ന്നതിന് തെന്മലയിൽ ഫൈവ് ഡി തീയറ്ററും നെടുമണ്ണൂർക്കടവിൽ വാട്ടർ തീം പാർക്കും ആരംഭിക്കുമെന്ന് മന്ത്രി കെ

കൊല്ലം ജില്ലയിലെ ശെന്തുരുണി ഇക്കോ ടൂറിസം വിപുലീകരണ ത്തിന്റെ ഭാഗമായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി